തീരുമാനമായിട്ടും ജെ

ഇന്തൃ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ ആദ്യ മൽസരം ഇന്ന് മുംബൈയിൽ

യു വിദ്യാർത്ഥികൾ സമരം തുടരുന്നത് നീതീകരിക്കാനാവില്ലെന്ന് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി രമേശ് പൊക്രിയാൻ നിഷാങ്ക് പറഞ്ഞു

അയ്യായിരത്തിലധികം കുട്ടികൾ ശീതകാല കോഴ്സുകളിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്

യു വിന്റെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട്കൊണ്ടുപോകുന്നതിനായി മന്ത്രാലയം ഉന്നതാധികാര സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു

ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും

റഷ്യ ഇറാൻ ഓസ്ട്രേലിയ മാലദ്വീപ് ദക്ഷിണാഫ്രിക്ക ചെക് റിപ്പബ്ലിക് എസ്തോണിയ ഡെൻമാർക് ഹങ്കറി ലാത്വിയ ഉസ്ബെക്കിസ്ഥാൻ യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രിമാരും മൂന്ന് ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും

അല്ലാത്തപക്ഷം നിയമ നടപടികൾ നേരിടേണ്ടിവരുമെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ വർഷം ചേമ്പേഴ്സ് ഓഫ് കൊമേഴ്സ് ആന്റ് ഇൻഡസ്ട്രിയുടെ കണക്കനുസരിച്ച് രാജ്യത്ത് അയ്യായിരത്തിനും ആറായിരിത്തിനും ഇടയിൽ അനധികൃത ഡ്രോണുകൾ ഉള്ളതായി കണ്ടെത്തിയിരുന്നു

സമുദ്രോൽപ്പന്നങ്ങളുടേയും നാളിക്കേരത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനുള്ള് സംര്്ഭങ്ങളും ഐ

കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷ്ട് യുടെ അദ്ധ്യക്ഷതയിൽ ഇന്നലെ ന്യൂഡൽഹിയിലാങ്ക് ബ്രീപ്പ് വികസന ഏജൻസിയുടെ ആറാമത് യോഗം ചേർന്നത്

മകരസംക്രമം നാളെ പുലർച്ചെ ആയതിനാൽ ശബരിമല ക്ഷേത്രനട ഇന്ന് മുഴുവൻ തുറന്നിരിക്കും കൂടുതൽ വിവരങ്ങളുമായി സുരേഷ്

ഈ സമയത്ത് ശബരിമലയിൽ മകരസംക്രമപൂജയും അഭിഷേകവും നടക്കും

കുളനട ആറന്മുള പമ്പാടിമൺ വഴി പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ ഇന്നലെ രാത്രി ഐരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിലെത്തി

തുടർന്ന് നാളെ ശബരിപീഠം വഴി ശരംകുത്തിയിലെത്തും മകരജ്യോതി ദർശനത്തിന് അനുഭവപ്പെടുന്ന ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കാൻ വിപുലമായ സന്നാഹങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്

അഗ്നിബാധ ഉൾപ്പെടെയുള്ള വലിയ അപകടങ്ങൾക്ക് കാരണമായേക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പിനെ തുടർന്നാണിത്

ഡൽഹി വ്യാപാര മഹാസംഘ് നൽകിയ പരാതിയിലാണ് നടപടി

വ്യാഴാഴ്ചയാണ് സഹ്യോഗ് കൈജിൻ എന്ന പേരിലുള്ള സംയുക്ത തീരസരുക്ഷാ പരിശീലനം നടക്കുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ വിമാനവും നാല് കപ്പലുകളും അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്

യു വിലെ സംഘർഷത്തിൽ ഇടതു വിദ്യാർത്ഥി സംഘടനകൾക്കും കോൺഗ്രസ്റ്റ് അനുകൂല വിദ്യാർത്ഥി സംഘടനയായ എൻ

യുവിനും പങ്കുണ്ടെന്ന് എ ബി വി

എട്ട് വീഡിയോകളും എബിവിപി പുറത്തുവിട്ടു ഇതിൽ അന്വേഷണം വേണമെന്ന് എബിവിപി ദേശീയ ജനറൽ സെക്രട്ടറി നിധി ത്രിപാഠി ആവശ്യപ്പെട്ടു

ഇക്കാര്യത്തിൽ ഇറാന്റെ അറിയിപ്പ് ലഭിച്ചതായി കാനഡയിലെ ഗതാഗത സുരക്ഷാ ബോർഡ് അധ്യക്ഷ കാത്തി ഫോക്സ് അറിയിച്ചു

കഴിഞ്ഞ ബുധനാഴ്ചയാണ് ടെഹ്റാൻ വിമാനുത്ത്മുവളത്തിൽ നിന്നും പറന്നുയർന്ന ഉടൻ മിസൈൽ പതിച്ച് വിമാണ്ടു തുകർന്നത്

ഇന്നത്തെ മത്സരത്തിന്റെ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള തത്സമയ വിവരണം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ആകാശവാണി പ്രക്ഷേപണം ചെയ്യും ആകാശവാണിയുടെ വിവിധ എഫ്

ചാനലുകളിലും തത്സമയ വിവരണം കേൾക്കാവുന്നതാണ്

ന്യൂസ് ഡസ്ക് ആകാശവാണി

വി സിന്ധുവും സൈന നെഹ്വാളും കളത്തിലിറങ്ങും ഇന്ത്യൻ താരങ്ങളായ കിഡംബി ശ്രീകാന്ത് ബി സായ് പ്രണീത് പി കശ്യപ് എച്ച്

തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് എന്നീ ജില്ലകൾക്കാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചത്

ജനുവരി ഒന്നു് മുതലാണ് സംസ്ഥാനത്ത് പ്താസ്റ്റിക് നിരോധനം പ്രാബല്യത്തിൽ വ്യ്യത്ത് നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ പരിസ്ഥിതീ സ്ഥാർക്ഷണ നിയമപ്രകാരം നടപടിയെടുക്കും പതിനായിരം രൂപ്പു മുത്ൽ അൻപതിനായിരം രൂപ വരെയാണ് പിഴ

എഫി ന്റെ ഭാരത് ദർശൻ പരിപാടിയുടെ ഭാഗമായി കേരളത്തിലെത്തിയ കശ്മീരി വിദ്യാർത്ഥികളുമായി ഗവർണ്ണർ ആരിഫ് മുഹമ്മദ്ഖാൻ കൂടിക്കാഴ്ച നടത്തി

ഇന്നലെ നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി അസം ഗവൺമെന്റ് ഈ വിഷയത്തിൽ കേന്ദ്രഗവൺമെന്റിന് ചില ശുപാർശകൾ സമർപ്പിച്ചിട്ടുണ്ട് ആരെയും വേർതിരിക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു

മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ഏകജാലക ഉന്നതാധികാര കമ്മിറ്റിയാണ് നിക്ഷേപങ്ങൾക്ക് അംഗീകാരം നൽകിയത്